ഇറക്കുമതി ചെയ്ത ഉള്ളിക്ക് പുതുക്കിയ കരുതൽ ശേഖര പരിധി ബാധകമാകില്ലെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി രാംവിലാസ് പസ്വാൻ പറഞ്ഞു

സൂപ്രീംകോടതിയാണ് ചിദ്രംബർത്തിന് ജാമ്യം അനുവദിച്ചത്

കോടതിയുടെ അനുവാദം കൂടാതെ രാജ്യം വിട്ടുപോകരുത് സാക്ഷികളെ സ്വാധീനിക്കകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്യരുത് എന്നിവയാണ് ജാമ്യ വൃവസ്ഥകൾ ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ മൂന്നംഗ ബഞ്ചാണ് ചിദംബരത്തിന് ജാമ്യം അനുവദിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടി

എല്ലും തമ്മിൽ ലയിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ പറഞ്ഞു തൊഴിലാളികളുടെ താൽപരൃം സംരക്ഷിക്കുന്നതിനും ഇവയെ ല്ലാഭ്കരമായ സംരംഭമാക്കി തീർക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾ ആർംഭിച്ചതായും മന്ത്രി പറഞ്ഞു

എല്ലിലൂടെ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി

സർക്കിൾ തലത്തിൽ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ അഞ്ച് പ്രവൃത്തി ദിവസത്തിനകം തീർപ്പാക്കണമെന്നും ട്രായ് ആവശ്യപ്പെട്ടു

രാജ്യത്തെ വിദൂര പ്രാദേശിക മേഖലകളിലേക്ക് വിമാന സർവ്വീസ് വിപൂലപ്പെടുത്തുകയാണ് പ്പിദ്ചത്രീയുടെ ലക്ഷ്യം

പ്രതിനിധി സംഘത്തോടൊപ്പം എത്തുന്ന ദമ്പതികൾ വൃത്തിയാക്കുന്ന തീരം പരിപാടിയിലും കടൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഡോർസ്റ്റെപ് സ്കൂൾ സന്ദർശനത്തിലും പങ്കെടുക്കും

റക്സിനിൽ നിന്നുള്ള ഒരാളിൽ നിന്ന് പ്രിസ്റ്റൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് യാദവിന്റെ പേര്ക് പുറത്ത് വന്നത്

ജമ്മുവിൽ ഇന്നലെ ചേർന്ന ഭരണ സമിതിയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ വോയ്സ് പൊതുജനങ്ങൾക്ക് പരാതികളും പ്രശ്നങ്ങളും ഗവൺമെന്റിനെ അറിയിക്കുന്നതിനായാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുന്നത് പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി രോഹിത് കൻസാൽ വിശദമായ അവതരണം നടത്തി ജമ്മുകാശ്മീരിലെ വൈദ്യുതി വിതരണം സംബന്ധിച്ചും യോഗം വിലയിരുത്തി

വൈദ്യുതി പ്പിത്ർണത്തിലെ നിലവിലെ സാഹചര്യവും കഴിഞ്ഞ മാസംക് മട്ഞ്തു വീഴ്ചയ്ക്കു ശേഷം വൈദ്യുതി ബന്ധം പുന്ടിസ്ഥാപിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് മേഖലയിലെ എല്ലാ വൈദ്യുത ലൈനുകളുടെയും കണക്കെടുക്കണമെന്നും അടുത്ത ശൈത്യകാലത്തിന് തകരാറുകളും പരിഹരിക്കണമെന്നും ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിച്ചു ജമ്മുകാശ്മീരിലെ മൂന്നരലക്ഷത്തിലധികം ജീവനക്കാർക്ക് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്താനും ഭരണസമിതി യോഗം അനുമതി നൽകി ന്യൂസ്ഡെസ്ക് ആകാശവാണി

പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും വെള്ളിയാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം

തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും നാളെ അവധി ഈ പ്പ് മണ്ഡലങ്ങളിലെ പ്രഖ്യാപിച്ചു

വൈകുന്നേരം നാളെ വരെ നിരോധനാജ്ഞയും മദ്യനിരോധനവും ഈ മണ്ഡലങ്ങളിൽ ഏർപ്പെടുത്തി

രജിസ്ട്രേഷന്റെ തത്സ്ഥിതി വിവരങ്ങൾ അടുത്ത ജനുവരി ഒന്നുമുതൽ പോർട്ടലിൽ നിന്ന് ലഭ്യമാകും

ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും എല്ലാ പ്രധാന വിപണന കേന്ദ്രങ്ങളിലും മിന്നൽ പ്രിമിശോധന തുടരുമെന്ന് ജില്ലാ അധികൃതർ അറിയിച്ചു

രാജ്യത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നാവികസേനയുടെ പങ്ക് വ്യക്തമാക്കുന്നതും നേട്ടങ്ങൾ എടുത്തുകാട്ടുന്നതുമാണ് ഓരോ നാവികദിനവും

ഇന്ത്യ നാളെ ശ്രീലങ്കയെ നേരിടും

കേരളത്തിന്റെ കെ എ ഇന്ദ്രജ അനനൃ ദാസ് ദിവ്യാ ഗണേഷ് എന്നിവർ രണ്ടാം റൌണ്ടിൽ ഇന്ന് മത്സരിക്കും